പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

അസം റൈഫിൾസിന് നൽകിയ പ്രത്യേക അധികാരം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം

ഗുഹാവാസികൾ ഉൾപ്പെടെയുള്ള ആദിവാസികളുടെ സംരക്ഷണത്തിനായി വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്

കേന്ദ്രമന്ത്രിമാരായ അരുൺ ജയ്റ്റ്ലി പീയുഷ് ഗോയൽ സുരേഷ് പ്രഭു രവിശങ്കർ പ്രസാദ് തുടങ്ങിയവരും ഉച്ചക്കോടിയെ അഭിസംബോധന ചെയ്യു വ്യാപാര വാണിജ്യ രംഗത്ത് ഭാവിയിലെ വികസന നയങ്ങൾ നിർദ്ദേശിക്കുകയാണ് രണ്ട് ദിവസത്തെ ഉച്ചക്കോടിയുടെ ലക്ഷ്യം ഈ രംഗത്ത് ആഗോള തദ്ദേശീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരും സാങ്കേതിക സംരഭകരും ഉൾപ്പടെ നിരവധിപേർ ഉച്ചക്കോടിയിൽ പൂള്ളിട്ടുക്കും

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും സമാധാനം സമൃദ്ധി എന്നിവയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇരുനേതാക്കളും പങ്കുവച്ചു സോൾ സമാധാന പുരസ്ക്കാരം ശ്രീമോദിക്ക് സമ്മാനിച്ചു രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിലും ജനങ്ങളുടെ ജീവിതനിലവാരം മെച്ചപ്പെടുത്തുന്നതിലും മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ നൽകിയ സംഭാവനകളും മുൻനിർത്തിയാണ് പ്രധാനമന്ത്രിക്ക് പുരസ്ക്കാരം സമ്മാനിച്ചത് ആഗോള തീവ്രവാദത്തെ ശ്രീ

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വിപുലപ്പെടുത്തുവാനും തീരുമാനിച്ചു

വോയിസ് ഭീകരവാദത്തിനെതിരെ വാക്കുകൾക്കപ്പുറം ഒറ്റക്കെട്ടായി ലോകം പ്രതികരിക്കേണ്ട സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇന്നുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയും ദക്ഷിണ കൊറിയയും ഭീകരവാദത്തെ ചെറുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ ഉപകരണ നിർമ്മാണത്തിൽ ഇരുരാജ്യങ്ങളും സഹകരിക്കും

പ്രസാർ ഭാരതിയുടെ ്ഡി

പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രദേശത്തെ സുരക്ഷ വിലയിരുത്തി

വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഫലമായാണ് സർവ്വീസ് വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതെന്ന് തിരഞ്ഞെടുപ്പു കമ്മീഷന്റെ പ്രസ്താവനയിൽ പറഞ്ഞു പട്ടികയിൽ പേര് ചേർക്കാത്ത സർവ്വീസിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും അവസരം ഉണ്ടെന്ന് തിരഞ്ഞെടുപ്പു കമ്മീഷൻ അറിയിച്ചു

സിബിഐ ജഡ്ജിൽരുൺ ഭരദാജ് കോടതിയിൽ വിരഭദ്ര സിങ്ങിനോട് ഇക്കാര്യം പ്പ്യക്തമാക്കി ഇൌ കേസിൽ സാക്ഷികളെ വിസ്തരിക്കാനും വേണ്ട രേഖകൾ ശേഖരിക്കാനും ഏപ്രിൽ മൂന്നിനും അഞ്ചിനും കേസ് വീണ്ടും പരിഗണിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിരഭദ്രസിങ്ങിനെതിരെ കേസെടുത്തിട്ടുണ്ട്

കേസിൽ ആരോപണ വിധേയരായ മറ്റുള്ളവരുടെ മൊഴികളും അവരിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും അടിസ്ഥാനമാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ

ഇതിന് പണം അനിവദിക്കില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റും പ്രൂക്താക്കി

ഗവൺമെന്റ് തസ്തികളിൽ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവസരം ലഭിക്കുന്നതിന് ബില്ല് സഹായിക്കുമെന്ന് പാർലമെന്റി സഹമന്ത്രി പ്രകാശ് പന്ത് പറഞ്ഞു

രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പി

മേഘാലയ ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസാണ് ഉമാനാഥ്സിങ്

ആരെയും അ സ്റ്റ് ചെയ്യാനും വാറാണ്ടില്ലാതെ എവിടെയുള്ള തിരച്ചിൽ നടത്താനും നൽകിയിരുന്ന പ്രത്യേക അധികാരങ്ങളാണ് താല്ക്കാലികമായി നിർത്തിവച്ചത് വിഷയത്തിൽ ് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളില്ലെ ഗവൺമെന്റുകളുമായി ചർച്ച നടത്തും

കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പിന്നാക്ക സമുദായക്കാർ ഉൾപ്പടെയുള്ളവരെ ഭീക്ഷണിപ്പെടുത്തുക ബഹീഷ്ക്കരിക്കുക തുടങ്ങിയ സാമൂഹിക തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈകൊള്ളാൻ സംസ്ഥാനഗവൺമെന്റുകളോടും കേന്ദ്രഭരണപ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു

സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം വേഗത്തിൽ നടപ്പാക്കുമെന്ന് ആദിവാസി ഗോത്രകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വനസംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

തുടർന്നാണ് ഇക്കാര്യം പരിശോധിച്ച് നടപടി എടുക്ക്ട്ൻ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിത്

ഗോലാഘട്ട് ജോർഹട്ട് ജില്ലകളിലുള്ളവരാണ് മരിച്ചത്

സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേർക്കെതിരെ അന്വേഷണം തുടരുകയാണെന്ന് ഗോലാഘട്ട് എസ് പി പറഞ്ഞു സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉത്തരവിട്ടു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഉത്തരവിട്ടു

സെപ്റ്റംബറിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം നടത്തിയിവരാണ് മൌദ്ഗിലും ചന്ദേലയും

ഇതിനെ തുടർന്നാണ് ലോകരാജ്യങ്ങൾ ഇറാനെതിരെ പ്രഖ്യാപിച്ച ഉപരോധം പിൻവലിച്ചത് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിൻമാറാണമെന്നുള്ള അമേരിക്കൻ വൈസ്പ്രസിഡന്റ് മൈക് പെൻസിന്റെ ആഹ്വാനത്തെ യൂറോപ്യൻ യൂണിയൻ തള്ളിയിരുന്നു

പ്ര്രഫഞ്ച് മാലിയിലെ വടക്കൻ തിംബക്തൂവിലേക്ക് പോകുന്നവഴിക്കാണ് സൈന്യം ഭീകരരെ വധിച്ചത്